ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വ്യാഴാഴ്ച ഒരുക്കങ്ങൾ പൂർണം

നൂതന സാങ്കേതിക വിദ്യുയ്ടെ സാധ്യതകൾ വിനിയോഗിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളോട് ആഹ്വാനം ചെയ്തു

സുധീർമാൻകപ്പ് ബാഡ്മിന്റണിൽ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയുമായി ഏറ്റുമുട്ടും

ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ജനവിധി അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫലമറിയാൻ ഒരു ദിനം മാത്രം ശേഷിക്കെ രാജ്യത്തെ പ്രധാന കക്ഷികൾ സഖ്യ നീക്കങ്ങൾ സജീവമാക്കി വിശദാംശങ്ങളുമായി സുരേഷ്

ഇലക്ട്രോണിക് വോട്ടിംഗ് ത്യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം തപാൽ വോട്ടുകൾ എണ്ണും ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിലെ വിവിപാറ്റ് മെഷിനിലെ ഫലം ഒത്തുനോക്കും

ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘർഷമുണ്ടായ സ്ഥലങ്ങളിൽ കേന്ദ്രസേനയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി

ടിഡിപി നേതാവ് ചന്ദ്രബാബു നായിഡു ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമത ബാനർജിയുമായി ചർച്ച നടത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ നേതാക്കളുടെ യോഗം ക്ക് ഇസ്സ് ന്യൂഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് യോഗം വിളീച്ചിരിക്കുന്നത്

ഡി

വിളിച്ചിരിക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൽ ജെ പി നേതാവ് രാംവിലാസ് പാസ്വാൻ ജെ

യു അധ്യക്ഷൻ നിതീഷ് കുമാർ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും ഇതിന്റെ ഭാഗമായി അത്താഴവിരുന്നും ഒരുക്കിയിട്ടുണ്ട് എക്സിറ്റ്പോൾ ഫലം വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ സഖ്യ വിപുലീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും

ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വി

പാറ്റ് യന്ത്രങ്ങളിലെ ഫലവും ഒത്തുനോക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കും നിലവിൽ ഒരു അസംബ്ലി മണ്ഡലത്തിലെ അഞ്ചു ബൂത്തുകളിലെ വി വി പാറ്റ് ഫലങ്ങളാണ് ഒത്തുനോക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഹർജി പരിഗണിച്ചാണ് അഞ്ചു ബൂത്തുകളിലെ ഫലം ഒത്തുനോക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്

ജമ്മു കാശ്മീരിലെ രണ്ട് ലോക്സഭാ സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്

കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ പിന്തുണയുണ്ട്

ഡി പി ഇവിടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നില്ല രണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത് ഉധംപൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കത്വവയിലെ ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക

ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ മുതൽ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർവരെ രീതിയിലാണ് നല്ല പ്രവർത്തിച്ചുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണ കക്ഷിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന് ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് ശ്രീ പ്രണബ് മുഖർജിയുടെ പ്രതികരണം

പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന ഉത്തരവിലാണ് കേന്ദ്രത്തിന്റെ വാദം പരിഗണിക്കുന്നത്

അഗസ്ത വെസ്റ്റ് ലാൻഡ് ഹെലികോപ്ടർ ഇടപാട് കേസിൽ പ്രതിയാക്കപ്പെട്ട ഗൌതം ഖൈത്താൻ ഇടപാട് വഴി ലഭിച്ച പണം വിദേശത്ത് നിക്ഷേപിച്ചുവെന്നാണ് കേസ്

കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വൃവസ്ഥകളാണ് ഖൈത്താൻ കോടതിയിൽ ചോദ്യം ചെയ്തത്

അസം മുഖ്യമന്ത്രി സർബാനന്ദ സൊനോവാൾ കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ശ്രീ

പൌരന്മാർക്കും സുരക്ഷ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ശ്രീ

യഥാർത്ഥ ഇന്ത്യക്കാർ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു

നരേന്ദ്രമോദി

നൂതന സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെട്ട് മുൻപന്തിയിൽ എത്തണമെന്ന് ട്വിറ്ററിൽ ശ്രീ മോദി യുവ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചു

എഫ് എം ഉച്ചകോടിയിലെ മുഴുവൻ സമയ അംഗമായി ഇന്തൃ പങ്കെടുക്കുന്ന രണ്ടാമത് ഉച്ചകോടിയാണ് കിർഗിസ്ഥാനിലേത്

എഫ്

ഇറാൻ ഒന്നും ചെയ്യാതിരുന്നാൽ അത് വലിയ തെറ്റായിരിക്കുമെന്ന് കരുതുന്നതായി ട്രംപ് പറഞ്ഞു ഇറാനുമായുള്ള അഭിപ്രായ വൃത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ യുദ്ധവിമാനവാഹിനിക്കപ്പലുകളും ബോംബറുകളും അടക്കമുള്ള സൈനിക സജ്ജീകരണങ്ങൾ ട്രംപ് ഭരണകൂടം ഈയിടെ വിന്യസിച്ചിരുന്നു ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി മൊഹമ്മദ് ജവാദ് സാരിഫ് ട്രംപിന്റെ വംശീയഹത്യാ അധിക്ഷേപത്തെ തള്ളിക്കളയുകയും രാജ്യത്തെ ഭീഷണിപ്പെടുത്തേണ്ട എന്ന് മുന്നറിയിപ്പും നൽകി

സത്ലജ് നദിയിലെ ജലത്തിന്റെ കണക്കുകളും ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്ന ജൂൺ ഒന്നു മുതൽ ചൈന കൈമാറും ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദി അരുണാചൽപ്രദേശിലൂടെയും അസമിലൂടെയുമാണ് ഒഴുകുന്നത് പിന്നീട് ബംഗ്ലാദേശ് വഴി ബംഗാൾ ഉൾക്കടയിൽ പതിക്കും ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സത്ലജ് ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്കാണ് ഒഴുകുന്നത്

എൻ പരിസ്ഥിതി സംഘടന്റയുടെട്ട ഇന്ത്യാ ഘടകവും വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ഔഷ് ഇന്ത്യയും സഹകരിച്ച് പുതിയ ക്യാമ്പെയിൻ കൊണ്ടുവരും

നാളെ നടക്കുന്ന ജൈവ വൈവിധൃ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രചാരണ പരിപാടികൾ ഇതിന്റെ ഭാഗമായി രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ പോസ്റ്ററുകളും നോട്ടീസുകളും അടക്കമുള്ളവ പതിപ്പിക്കും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ സെക്രട്ടറി സി

ഇന്നലെയാണ് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചത്

സ്കൂൾ വിഷയം മുൻഗണന എന്നിവയിലും തിരുത്തൽ വരുത്താം വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും കഴിയും

ഇന്ത്യയ്ക്ക് മലേഷ്യയെ പരാജയപ്പെടുത്താനായാൽ ആത്മവിശ്വാസത്തോടെ പത്ത് തവണ ചാമ്പൃൻമാരായ ചൈനയെ നാളെ നേരിടാനാകും ഞായറാഴ്ച നടന്ന ഓപ്പൺ മത്സരത്തിൽ മലേഷ്യയെ ചൈന പരാജയപ്പെടുത്തിയിരുന്നു

ഇതേവിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖാത്ത് സരീനും അനാമികയും നേർക്കുനേർ മത്സരിക്കും